തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവം

ദീർഘിപ്പിക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി

വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്രസർക്കാർ

പാക് ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു

മത്സരത്തിന് അൽപസമയത്തിനകം തുടക്കമാവും

വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം അവശേഷിക്ക് ്ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണം സജീവമാക്കി സ്ഥാന്ാർത്ഥി്കളും പാർട്ടി പ്രവർത്തകരും വോട്ട് തേടി പര്യടനം തുടരുകയാണ്

മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷനേതാവ് രിമേൽ ചെന്നിത്തലയും അടക്കം പ്രചരണത്തിൽ സജീവമാണ്

അതോടൊപ്പം സംസ്ഥാനത്ത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നു കേന്ദ്ര മന്ത്രി അമിത് ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ സംസ്ഥാനത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിലും റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് പുരുലിയ ജില്ലയിൽ മൂന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും

എന്നാൽ കോവിഡ് വ്യാപനം തുടരുന്നത് പ്രചാരണത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്

കേരളത്തിനൊപ്പം ഏപ്രിൽ ആറിന് ഒറ്റ ഘട്ടമായാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്

ലോക്സഭ ഇന്നലെ ബിൽ പാസ്സാക്കി

ഡൽഹി നിയമസഭയുടെയും ലെഫ്റ്റനന്റ് ഗവർണറുടെയും അധികാരത്തിലും ചുമതലകളിലും ചില മാറ്റങ്ങൾ വരുത്തുന്നതാണ് പുതിയ ഭേദഗതി നിയമസഭയുള്ള അധികാര പരിധിയ്ക്ക് പുറ ത്തുള്ള വിഷയങ്ങളിലെ നിയമനിർമാണത്തിന്റ് ല്ലെഫ്റ്റനന്റ് ഗവർണർക്ക് അധി കാരം നൽകുന്നതാണ് പുതിയ ഭേദഗതി

കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ആണ് ഇക്കാര്യം അറിയിച്ചത്

വൈ ചന്ദ്രചൂഡ് എം

ഷാ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ചാണ് ഹർജികൾ തള്ളിയത് സാമ്പത്തിക പാക്കേജുമായി ബന്ധപ്പെട്ട് സർക്കാരിനോ റിസർവ് ബാങ്കിനോ ഒരു നിർദ്ദേശവും നൽകാൻ തയ്യാറല്ലെന്ന് സുപ്രീം കോടതി വൃക്തമാക്കി പിഴപലിശ ഈടാക്കാനാകില്ലെന്നും എന്നാൽ പലിശ പൂർണമായും എഴുതിതള്ളാൻ സാധിക്കില്ലെന്നും കോടത് ് കൂട്ടിച്ചേർത്തു

ഇത് തർണം ചെയ്യാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു

കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന

ഇന്ത്യയുടെ സിന്ധു ജല കമ്മീഷണർ പ്രദീപ് കുമാർ സക്സേനയും പാകിസ്ഥാനിൽ നിന്ന് സയ്യിദ് മുഹമ്മദ് മെഹർ അലി ഷായും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്

ഈ കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ് രാവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു ചെനാബ് ് ത്സലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി എം ആർ അറിയിച്ചു

മധ്യപ്രദേശ് ഡൽഹി ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം ഉയരുകയാണ്

എന്നാൽ കോവാക്സിന് പുതുക്കിയ ഇടവേള ബാധകമല്ല

ഈ വീരസേനാനികളുടെ ധൈര്യവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവും നിരവധി പേർക്ക് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാൻ പ്രചോദനമായതായി ഉപരാഷ്ട്രപതി എം

ഭഗത് സിംഗിന്റെയും ് സുഖ്ദേവിന്റെയും രാജ്ഗുരുവിന്റെയും ത്യാഗം വരുംതലമുറയ്ക്കും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറ ഞ്ഞു

റാം മനോഹർ ലോഹ്യയുടെ ജന്മവാർഷികദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ദാർശനികനും എഴുത്തുകാരനുമായിരുന്ന റാം മനോഹർ ലോഹൃയുടെ ഓർമ കൾ അദ്ദേഹം മുന്നോട്ട് വച്ച പുരോഗമനപരമായ ആശയങ്ങളിലൂടെ നില നിൽക്കുന്നതായും ഉപരാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു റാംമനോഹർ ലോഹ്യ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ ജനങ്ങൾക്ക് എന്നും പ്രചോദനമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

സമാധാനം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാശ്മീർ വിഷയം ഉൾപ്പെട്ടി ച്ർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ബംഗ്ലദേശിനും രാജ്യത്തെ ജനതയ്ക്കും ലഭിക്കുന്ന വലിയ അംഗീകാരമാണിതെന്ന് ബംഗ്ലദേശ് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ബംഗബന്ധു ഷേഖ് മുജീബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇരു രാജ്യങ്ങളും സംയുക്ത മായി ആഘോഷിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് പുരസ്കാരമെന്നും ബംഗ്ലദേശ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അധ്യക്ഷനായ സമിതിയാണ് ഷേഖ് മുജീബുർ റഹ്മാന് പുര സ്കാരം നൽകാൻ തീരുമാനിച്ചത്

മേഘാലയ മുഖ്യമന്ത്രി കോൺറാട് സാംഗ്മ മാർച്ചിൽ പങ്കാളിയായി